പാവപ്പെട്ടവർക്കും വനിതകൾക്കും കൈ ത്താങ്ങായി കേന്ദ്ര ബജറ്റ്

ധനമന്ത്രി നിർമല സീതാരാമൻ ്കർഷകക്ഷേമത്തിന് സെസ്

ടി റിട്ടേൺ നൽകേണ്ട

കർഷകക്ഷമത്തിന് സർക്കാർ മുൻതൂക്കം നൽകും ആയിരത്തിലേറെ കാർഷിക മണ്ഡികൾ ദേശീയ ഇലക്ട്രോണിക് വിപണിയുമായി ബന്ധിപ്പിക്കും

എന്നാൽ ഇവയുടെ എക് സൈസ് ഡ്യൂട്ടി കുറച്ചതിനാൽ പ്പീല് കൂടില്ല

ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും ഉൌന്നൽ നൽകും വാക്സിനേഷൻ കൂടുതൽ ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു

ദേശീയ ആരോഗൃ ദൌതൃത്തിനുള്ള ്യ്ക്ക്യിരുത്തലിന് പുറമെയാണിത് വിശദ വിവരങ്ങളുമായി ർഞ്ജിത്

രാജൃത്ത് ഏഴ് വസ്ത്ര നിർമ്മാണ പാർക്കുകൾ മൂന്നു വർഷത്തിനുള്ളിൽ സ്ഥാപിക്കും

പ്രതികൂല സാഹചര്യത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്

പുക അടുപ്പും മലിനീകരണവും ഒഴിവാക്കി ഗ്രാമീണ അടുക്കളകളെ സ്മാർട്ടാക്കുന്ന പ്രധാനമന്ത്രി ഉജ്വൽ പദ്ധതിയിൽ ഒരു കോടി കുടുംബങ്ങളെക്കൂടി ഉൾപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു

കേരളത്തിന് പുറമെ തമിഴ്നാട് പശ്ചിമ ബംഗാൾ അസം സംസ്ഥാനങ്ങ ൾക്കും പ്രത്യേക റോഡ് വകയിരുത്തി

മധുര കൊല്ലം ഇടനാഴി ഇതിലുൾപ്പെടുന്നു ഇതിന്റെ നിർമ്മാണം അടുത്ത വർഷം തുടങ്ങും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിശദാംശങ്ങളുമായി സുരേഷ്

രണ്ട് പൊതു മേഖലാ ബാങ്കുകളും ഒരു ഇൻഷവറൻസ് കമ്പനിയുടെയും ഓഹരി കൈമാറ്റം നടത്തും തന്ത്ര പ്രധാനവും അല്ലാത്തതുമായ മേഖലകളിലെ ഓഹരി കൈമാറ്റത്തിന് മന്ത്രി സഭ അനുമതി നൽകിയിട്ടുണ്ട്

പിന്നീട് അവ സ്ക്രാപ്പ് ചെയ്യും

നികുതി സംവിധാനം സുതാരൃമാക്കുമെന്നും ആദായ നികുതി തർക്ക ങ്ങൾ പരിഹരിക്കാൻ സമിതി രൂപീകരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു സ്വർണത്തിന്റേയും വെള്ളിയുടേയും ഇറക്കുമതി ചുങ്കം കുറച്ചു

ഡിവിഡന്റ് തുക ലഭിച്ചതിനുശേഷം ഇനി മുത്യർ ടാക്സ് റിട്ടേൺ നൽകിയാൽ മതിയാകും

പ്രവാസി ഇന്തൃക്കാരുടെ ഇരട്ട നികുതിയും ഒഴിവാക്കി

രാജ്യത്തിന്റെ ചരിത്രത്തിലാദൃമായി കടലാസിൽ അച്ചടിച്ച ബജറ്റിന് പകരം ഡിജിറ്റൽ സാങ്കേതികവിദൃയിലാണ് പാർലമെന്റിൽ ശ്രീമതി നിർമല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്

പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ബജറ്റ് പെട്ടി ശീലത്തിന്റെ തുടക്കം

ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരുട്ട് വീഴുമ്പോൾ പ്രകാശം കാത്തിരിക്കുന്ന പക്ഷിയെപ്പോലെ പ്രത്യാശ നിറഞ്ഞതാണ് സാമ്പത്തിക വൃവസ്ഥ ബജറ്റെന്ന് ധനമന്ത്രി പറഞ്ഞു അദാലത്ത് ജനകീയ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സാന്ത്വന സ്പർശം അദാലത്തുകൾക്ക് തുടക്കമായി

അദാലത്തിൽ പരാതികൾ ഓൺലൈനായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങൾക്കുള്ള ഫീസ് സർക്കാർ നൽകും കണ്ണൂർ ഇരിട്ടിയിൽ മന്ത്രി ഇ പി ജയരാജനും കോഴിക്കോട് കൊയിലാണ്ടിയിൽ മന്ത്രി എ

ആലപ്പുഴ ജില്ലയിൽ മന്ത്രി ജി

തോമസ് ഐസക് മന്ത്രി പി തിലോത്തമൻ എന്നിവരാണ് അപേക്ഷകൾ പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നത് കൊല്ലം ശ്രീനാരായണ്ടു കോളേജിൽ നടക്കുന്ന അദാലത്തിൽ മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ

നിലവിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുദ്രവിലയുള്ള് ഇടപാടുകൾക്ക് മാത്രമായിരുന്നു ഇ സ്റ്റാമ്പിംഗ് സംവിധാനം ഉപയോഗിച്ചിരുന്നത് ഇനി ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള ഇടപാടുകൾക്കും ഇ സ്റ്റാമ്പിംഗ് നിർബന്ധമാണ്

ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പും പൊലീസും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുന്നത് അമിതവേഗം മദ്യപിച്ച് വാഹനമോടിക്കൽ എന്നിവയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും

ഉച്ചയ്ക്ക് ജില്ലാ അതിർത്തിയായ ഒളവറ പാലത്തിന് സമീപം സ്വീകരണം നൽകും